പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം

ബജറ്റ് സമ്മേളനത്തിൽ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്ന് പ്രധാനമ്യന്തി നരേന്ദ്രമോദി

വെല്ലിംഗ്ടണിൽ

സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഗവൺമെന്റ് ഇന്നലെ സർവ്വകക്ഷിയോഗം വിളിച്ചിരുന്നു

സമ്മേളന കാലത്ത് സഭയ്ക്ക് മുന്നിലെത്തുന്ന എല്ലാ കാര്യങ്ങളിലും തുഎന്ന് ചർച്ചയ്ക്ക് ഗവൺമെന്റ് ഒരുക്കമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രി മോദി പറഞ്ഞു നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ സഭ ശ്രദ്ധ് കേന്ദ്രീകരിക്കണമെന്ന യോഗ തീരുമാനത്തോട് പ്രധാനമന്ത്രി യോജിച്ചു വർത്തമാനകാല ആഗോള സാമ്പത്തിക പശ്ചാത്തലത്തിൽ ്രാജ്യത്തിന് ഏതു തരത്തിൽ നേട്ടം കൈവരിക്കാനാകുമെന്ന് എപ്പാ അംഗങ്ങളും ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഊർജ്ജമേഖലയിൽ സുപ്രധാനമായ പരിവർത്തന ഘട്ടത്തിലാണ് രാജ്യമെന്ന് അദ്ദേഹം പറഞ്ഞു അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഊർജ്ജ ഉപഭോഗം ഉള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് ശ്രീ

കൂടുതൽ ഊർജ്ജം പ്രദാനം ചെയ്യുന്നതും പക്ഷേ കാർബൺ വികിരണം കുറഞ്ഞതുമായ ഊർജ്ജ സ്രോതസിനായി രാജ്യം ഗവേഷണം നടത്തിവരുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു

ഇറ്റാ നഗറിൽ ഇന്നലെ അരുണാചൽ പ്രദേശ് സംസ്ഥാന ഗവൺമെന്റും വിവിധ ജലവൈദ്യുത പൊതുമേഖലാ കമ്പനികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം നിർമ്മാണത്തിലുള്ള വിവിധ പദ്ധിതകൾ ഒരേ സമയം തന്നെ പൂർത്തീകരിക്കണമെന്ന് കേന്ദ്ര മന്ത്രി കമ്പനികളോട് നിർദ്ദേശിച്ചു

ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ പൊലീസ് കമ്മീഷണർമാർ തദ്ദേശ തലത്തിൽ പ്രചുമതലയുള്ള നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുക്കുർ യോഗത്തിൽ നിയമസഭാ തെർഞ്ഞ്ടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തും സ്വതന്ത്രവും നീതീപൂർവ്വകവുമായ തെരഞ്ഞെടുപ്പിനായി കൈക്കൊള്ളേണ്ട നടപടികളും ചർച്ച ്ചെയ്യും

വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ബിജെപിയുടെ പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുത്തു അരവിന്ദ് കെജ്രിവാൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടു വന്ന നേട്ടങ്ങൾ എന്താണെന്ന് ശ്രീ അമിത് ഷാ ന്യൂഡൽഹി മണ്ഡലത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ ചോദിച്ചു ജെഎൻയു വിൽ വിഭജന മുദ്രാവാകൃം വിളിച്ചവരെ വിചാരണ ചെയ്യാൻ ഡൽഹി ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്നും ശ്രീ അമിത്ഷാ കുറ്റപ്പെടുത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും വിവിധ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു തനിക്കെതിരെ ബിജെപി അനാവശ്യ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ശ്രീ

കോൺഗ്രസ് നേതാക്കളായ അജയ് മാക്കൻ സുഭാഷ് ചോപ്ര എന്നിവരും പ്രചാരണത്തിനുണ്ട്

പൌരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ്ബിജെപി ഇന്നലെ കൊൽക്കത്തയിൽ അഭിനന്ദൻ യാത്ര സംഘടിപ്പിച്ചു ജനങ്ങളിൽ ശരിയായ വിവരങ്ങൾ എത്തിക്കാനാണ് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് എം

കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്ന് ഇടതു മുന്നണി അധ്യക്ഷൻ ബിമൻ ബസു ആരോപിച്ചു കോൺഗ്രസ് നേതാവ് പ്രദ്രീപ് ഭട്ടാചാര്യയും കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിച്ചു

വോയിസ് ചൈനയിൽ രോഗത്തിന്റെ വ്യാപനത്തെക്കാൾ മറ്റു രാജ്യങ്ങളിലേയ്ക്ക് വൈറസ് പടരാതിരിക്കാനാണ് ആരോഗ്യ ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് പറഞ്ഞു വൈറസ് പുറത്തേക്ക് പടരാതിരിക്കാൻ ചൈനീസ് ഗവൺമെന്റ് കൈക്കൊണ്ട കരുതൽ നടപടികൾ അഭിനന്ദനാർഹമാണ് ചൈനയിൽ സന്ദർശനം നടത്തിയ ലോകാരോഗ്യ സംഘടനാ തലവൻ പ്രസിഡന്റ് ഷീ ജിൻ ഷിങ്ങിനെ കണ്ടു കൊറോണ വൈറസ് പടരാതിരിക്കാൻ എല്ലാവരും കൂട്ടായി യത്നിക്കാമെന്നും ടെഡ്രോസ് പറഞ്ഞു

കൊറോണ വൈറസിനെതിരായ മുൻകരുതൽ നടപടികൾ വളരെ പ്രധാനമാണെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഡയറക്ടർ ഡോ

തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളജിൽ കഴിഞ്ഞ അർധരാത്രിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ

ഹെൽത്ത് ആന്റ് ഹ്യൂമൻ സർവീസ് സെക്രട്ടറി അലക്സ് അസറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേകസംഘം പ്രവർത്തിക്കുകയെന്ന് വൈറ്റ്ഹൌസ് പ്രസ് സെക്രട്ടറി സ്റ്റെഫാനി ഗ്രിഷാം അറിയിച്ചു ദേശീയ സുരക്ഷാ കൌൺസിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും

ഫറൂഖാബാദിൽ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ തടവിലാക്കപ്പെട്ട കുട്ടികളെയാണ് ഇന്ന് പുലർച്ചയോടെ പൊലീസ് ഏറ്റുമുട്ടലിലൂടെ രക്ഷിച്ചത് മകളുടെ ജന്മദിനത്തിനാണ് പ്രതി അയൽപക്കത്തെ കുട്ടികളെ വീട്ടിലേക്ക് ക്ഷണിച്ചത്

വീട്ടിലേക്ക് ഇരച്ചു കയറിയ പൊലീസ് പ്രതിയെ വെടി വച്ചു കൊലപ്പെടുത്തിയാണ് കുട്ടികളെ രക്ഷിച്ചത്

ലഫ്റ്റനന്റ് ഗവർണർ ആർ

ഭട്നാഗറുടെ ഉപദേഷ്ടാവ് ഇതു സംബന്ധിച്ച നിർദ്ദേശം ബി എസ് എഫ്

ആർ

അതിർത്തി പ്രദേശങ്ങളിൽ ലഹരി മരുന്നുകളുടെ വ്യാപനം തടയാനായി നിരീക്ഷണം ശക്തമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്

ആദ്യ മൂന്ന് മത്സരങ്ങളിലും ജയിച്ചതിന്റെ ആത്മ വിശ്വാസവുമായാണ് ഇന്ത്യ കളിയ്ക്കാൻ ഇറങ്ങുന്നത്

ഇംഗ്ളണ്ടിലെ സാലിസ്ബറി കത്തീഡ്രലിൽ കണ്ണാടി ചില്ലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥമാണ് മാർക്ക് റോയ്ഡൻ എന്ന നാല്പതുകാരൻ ചുറ്റിക കൊണ്ട് ചില്ല് അടിച്ചു പൊട്ടിച്ച് മോഷ്ടിക്കാൻ ശ്രമിച്ചത്